ജെ

ജാർഖണ്ഡിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് മാവോയിസ്റ്റുകളും ഒരു ജവാനും കൊല്ലപ്പെട്ടു

സമ്പൽസമൃദ്ധിയുടെ നിറകാഴ്ച ഒരുക്കി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു കേരളീയർക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു

എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും ഏറ്റുമുട്ടും

പ്രധാനമന്ത്രി നരേന്ദ്രേമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവർ ഇന്നും വിവിധ സംസ്ഥാനങ്ങളിലെ പ്രചാരണയോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്

അസം ബീഹാർ ഒഡീഷ എന്നിവിടങ്ങളിലെ അഞ്ച് മണ്ഡലങ്ങളിലും ഛത്തീസ്ഗഡ് പശ്ചിമ ബംഗാൾ എന്നീപ്പിട്ങ്ങളിലെ മൂന്ന് മണ്ഡലങ്ങളിലും അന്ന് വോട്ടെട്ടുപ്പ് നട്ക്കും മണിപ്പൂർ ത്രിപുര പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും രണ്ടാംഘട്ടത്തിൽ തന്നെയാണ് വോട്ടെടുപ്പ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ദേശീയ നേതാക്കൾ ഇന്നും പ്രചാരണ രംഗത്ത് സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജമ്മുകാശ്മീരിലെ കത്വ ഉത്തർപ്രദേശിലെ അലിഗഡ് മൊറാബാദാബാദ് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു സബ് കാ സാത് സബ് കാ വികാസ് എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിനുവേണ്ടിയാണ് എൻ

എ ഗവൺമെന്റ് പ്രവർത്തിച്ചതെന്ന് ശ്രീ

രാജ്യത്ത് നിന്ന് ഭീകര പ്രവർത്തനങ്ങളും അഴിമതിയും പട്ടിണിയും തുടച്ചു നീക്കുവാൻ തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ

ഗുജറാത്തിലെ ഗാന്ധിനഗർ കലോൾ പട്ടണത്തിൽ ബി ജെ

കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വധേര ഇന്നലെ അസമിലെ സിൽചാറിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നക്സൽ ഭീഷണിയെ തുടർന്ന് തെർഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിച്ചേരാൻ കഴിയാത്തിടങ്ങളിലാണ് റീപോളിംഗ് ഏർപ്പെടുത്തിയത്

സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാളെയും മറ്റന്നാളും കേരളത്തിൽ പര്യടനം നടത്തുമെന്ന് കെ

സി

ഇന്ന് രാത്രി തിരുവന്ന്തപുരത്ത് എത്തുന്ന അദ്ദേഹം നാളെ രാവിലെ പത്തന്നാപുരത്തും പത്തനംതിട്ടയിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധ ചെയ്യും തുടർന്ന് അന്തരിച്ച മുൻ മന്ത്രി കെ

മാണിയുടെ പാലായിലെ വസതി സന്ദർശിച്ച ശേഷം വൈകിട്ട് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും

സ്ത്രീകളുടെ അന്തസിനെ മൊത്തത്തിൽ അപമാനിക്കുന്നതാണ് അസംഖാൻ നടത്തിയ പ്രസ്താവനയെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് ഇത്തരം പരാമർശം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലെന്ന് വനിതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ വിശദീകരണം നൽകാൻ കമ്മീഷൻ അസംഖാനോട് ആവശ്യപ്പെട്ടു അസംഖാന് മത്സരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് വനിതാകമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ പറഞ്ഞു

ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് ഈ വിഷയത്തിൽ പരമോന്നത കോടതിയെ സമീപിച്ചത്

പി എം പി മീനാക്ഷി ലേഖി സമർപ്പിച്ച കേസും ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും

എഫുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഒരു സൈനികനും വീരമൃത്യു വരിച്ചു ബെൽബാഗാട്ട് വനമേഖലയിൽ തെരച്ചിൽ നടത്തുകയായിരുന്ന സി

എഫ് ന് നേരെ മാവോയിസ്റ്റുകൾ ആക്രമണം അഴിച്ചു വിടുകയായിരുന്നു

ആക്രമണം നടന്ന സ്ഥലത്ത് നിന്നും മൂന്ന് മാവോയിസ്റ്റുകളുടെ മൃതശരീരവും ആയുധങ്ങളും കണ്ടെടുത്തു മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്

നിയന്ത്രണരേഖയോട് ചേർന്ന് രജൌറി ജില്ലയിലെ നൌഷേറയിലാണ് കരാർ ലംഘിച്ച് പാക്കിസ്ഥാൻ ഷെല്ലാക്രമം നടത്തിയത് ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു

ജൂമ്മു മേഖലയിൽ തീവ്രവാദം അവസാനിപ്പിക്കാൻ സൈനൃപ്പി പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പ്രറഞ്ഞു

ജെറ്റ് എയർവേയ്സ് അധികൃതരും എസ്

ഐ അധികൃതരുമായി നടത്തുന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് സമരം മാറ്റി വെച്ചത്

വില വർദ്ധന കാരണം പാവപ്പെട്ടവർക്ക് ചികിത്സ നേടാൻ കഴിയുന്നില്ലെന്ന് സംഘടനയുടെ ഔഷധ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മരിയാഗേല സിമാവോ പറഞ്ഞു അതത് രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ ഇക്കാര്യം പരിശോധിച്ച് വില കുറയ്ക്കാൻ മരുന്ന് കമ്പനികളോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതിൽ രണ്ടു പേർ സ്വകാര്യ കോച്ചിംഗ് സെന്റർ ഉടമകളാണ് ആൾജിബ്ര ജ്യോമെട്രി സയൻസിന്റെ ഒന്നും രണ്ടും ചോദ്യപേപ്പറുകൾ ഹിസ്റ്ററി എന്നിവയാണ് ചോർത്തിയത്

ഡൽഹി സ്വദേശികളായ നിതിൻസുഡ് പ്രവീൺകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്

കേരളത്തിന്റെ പ്രതാപവും പാരമ്പര്യവും വിളിച്ചോതുന്ന വിഷു മേടമാസത്തിലെ ഒന്നാം തീയതിയാണ് ആഘോഷിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷു കണി ദർശനത്തിന് ഇന്ന് അഭൂതപൂർവ്വമായ ഭക്തജനതിരക്കനുഭവപ്പെട്ടു

വിഷുവിനോട് അനുബന്ധിച്ച് കേരളീയർക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു

രാംനാഥ് കോവിന്ദ് ട്വിറ്ററിൽ കുറിച്ചു

എൽ ക്രിക്കറ്റിൽ മൂന്നാർ സ്ഥാനക്കാരായ മുംബൈ ഇന്ത്യൻസും അവസാന സ്ഥാനുത്തുള്ള ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും ഇന്ന് ഏറ്റൂമുട്ടും

മറ്റൊരു മൽസരത്തിൽ കൊൽക്കത്തയെ പരാജയപ്പെടുത്തി ചെന്നൈ പോയിന്റ് നിലയിൽ ഒന്നാമതെത്തി